ജമ്മുകാശ്മീരിൽ തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അവസാനഘട്ട വോട്ടെടുപ്പ് സമാധാനപരമായി പുരോഗമിക്കുന്നു

വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും

ഐ

ഐയുടെ പുതിയുസി

സന്ദീപ് ന് ബക്ഷിയെ നിയമിച്ച തീരുമാനത്തിന് ആർ

ഐ യുടെ അംഗീകാരം

ഇന്ത്യയുടെ സൂരജ് പൻവാറിന് വെള്ളി

എന്നാൽ ശ്രീനഗറിൽ വെറും ഒരു ശതമാനം മാത്രമാണ് പോളിംഗ് രേഖരപ്പെടുത്തിയത്

ഐ ബാങ്കിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറും സി ഇ

സന്ദീപ് ബക്ഷിയെ നിയമിച്ച തീരുമാനത്തിന് റിസർവ്വ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകിയതായി ബാങ്ക് അധികൃതർ അറിയിച്ചു മൂന്നു വർഷത്തേക്കാണ് നിയമനം അന്വേഷണം നേരിടുന്ന ചന്ദ കൊച്ചാർ ഈ മാസം ആദ്യം സി ഇ ഓ സ്ഥാനം രാജി വച്ചതിനെ തുടർന്നാണ് സ്ന്ദ്രീപിനെ തൽസ്ഥാനത്ത് നിയമിച്ചത്

വിവിധ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടതിന്റെ തുടര് ഈ മാസം നാലിനാണ് ചന്ദ കൊച്ചാർ രാജി വച്ചത്

ബ്രെയ്ക്ക് ഇൻടു ഇന്ത്യ സ്ട്രാറ്റജി കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത് വികസന അന്താരാഷ്ട്ര വ്യാപാര മന്ത്രാലയമാണ് വിവിധ സ്ഥാപനങ്ങളിലെ ഗവേഷകർ മറ്റ് ഉന്നത സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ തുടങ്ങിയവരാണ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഈ വർഷം അവസാനത്തോടെ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കും

വിവിധ സ്മാരകങ്ങൾക്ക് മുന്നിൽ നിന്ന് ഈ ഭജൻ ആലപിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് അദ്ദേഹം പങ്കുവെച്ചത് അൾജേരിയൻ ഗായകൻ ബറാക്ക മെർസായി അർജന്റീനയിലെ ഗായിക കരോളിന ഷ്റം ബറൈനി ഗായകൻ നൂർ അസർബയ്ജാനിലെ ത്ഥീഖ് അലിയേവ് മുകേഷ് തുടങ്ങി നിരവധി ഗായകരാണ് വൈഷ്ണവ ജനതോ എന്ന ഗാനത്തെ അവതരിപ്പിച്ചത്

സിക്ക വൈറസ് കണ്ടെത്തിയവരുടെ ആരോഗ്യ നിലയിൽ മാറ്റമില്ലെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു

കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ പലയിടങ്ങളിലും തുടരുകയാണ് രക്തം സ്വീകരിക്കുന്നതിന് മുമ്പ് ദാതാക്കൾക്ക് സിക്ക വൈറസ് ബാധയില്ലെന്ന് ഉറപ്പ് വരുത്തണമെന്നും നിർദ്ദേശമുണ്ട്

കേന്ദ്ര മന്ത്രി ആർ

ഗുജറാത്ത് പഞ്ചാബ് ഗ്ടോവ് ആന്ധ്രാപ്രദേശ് ഹരിയാന കേരളം തമിഴ്നാട് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളെയാണ് ഇതിൽ നിന്ന് ഒഴിവാക്കിയത്

മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പാറ്റ്നയിൽ ചേർന്ന് ഉന്നത തല യോഗത്തിനുശേഷമാണ് ഈ അറിയിപ്പ് മഴയുടെ അഭാവമാണ് സ്ഥിതി രൂക്ഷമാക്കിയത് വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ കർഷകർ സഹകരണ സംഘങ്ങളിൽ നിന്നെടുത്ത ലോണുകളുടെ തിരിച്ചടവ് ദ്ദ ഭൂനികുതി ജലസേചന വൈദ്യുതി ചാർജ്ജ് എന്നിവ ഈടാക്കുന്നത് നീട്ടി വച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലെ കർഷകർക്ക് ഡീസൽ വിത്തുകൾ എന്നിവയിൽ സബ്സിഡി അനുവദിക്കും

വിശദാംശങ്ങളുമായി സോഫിയ

ഇതിൽ എട്ടെണ്ണം നക്സൽ ബാധിത ജില്ലുകളായ ബസ്തർ ബിജാപ്പൂർ ദന്തേവാധ സുഖ്മ കൊണ്ടഗാവ് കാൻകർ നാരായൺപൂർ രാജ്നന്ദഗാവ് എന്നിവിടങ്ങളിലാണ്

ഇതിനൊപ്പം മുഖ്യമന്ത്രി ചെ്യർമാനായ ഉപദേശക സമിതിയ്ക്കും രൂപം നൽകിയിട്ടുണ്ട് ഈ ഉപദേശക സമിതിയിൽ വിവിധ മേഖലയിലെ വിദഗ്ദ്ധർ അംഗങ്ങളാകും ഇന്ന് ചേർന്ന മന്ത്രി സഭാ യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്

കോടതി വിധിക്കെതിരെ ഗവൺമെന്റ് നിയമനിർമാണം നടത്തില്ല ശബരിമലയിലേയ്ക്കുള്ള വിശ്വാസികളുടെ വാഹനം തടയരുതെന്നും അവർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഗവൺമെന്റ് ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

അഴിമതി കൈകൂലി എന്നിവയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം രൂപപ്പെടുത്താൻ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സാധിക്കണമെന്നും ശ്രീ

അഴിമതി എന്ന കളങ്കത്തെ തുടച്ചു നീക്കുക എന്ന ആഗ്രഹം മനസിൽ സൂക്ഷിക്കുന്ന ജനങ്ങളാണ് ഇന്ത്യയിലുള്ളതെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റലി പറഞ്ഞു അഴിമതിക്കെതിരെയുള്ള ശുദ്ധീകരണ പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് നടപ്പാക്കിയ ചരക്ക് സേവന നികുതി മൂല്യമേറിയ കറൻസി നോട്ടുകൾ അസാധുവാക്കൽ തുടങ്ങിയവയെന്നും ശ്രീ ജെയ്റ്റലി വ്യക്തമാക്കി

വിയറ്റ്നാമിലേക്കുള്ള യാത്രാ മദ്ധ്യേ മാധ്യമി പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമേരിക്ക ചൈനയുമായി സുതാര്യവും പരമാധികാരത്തെ ബ്ഹുമാനിച്ചു കൊണ്ടുള്ള ഒരു ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്ന് വ്വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് കഴിഞ്ഞാഴ്ച നടത്തിയ നയപ്പ്പ്പ്യാപന പ്രസംഗത്തെ ഉദ്ദരിച്ചു കൊണ്ട് മാറ്റിസ് അറിയിച്ചു

സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ സൌദി രാജാവ് സൽമാനുമായി കൂടിക്കാഴ്ച നടത്തും

ഈ മാസം രണ്ടിന് ഇസ്താംബൂളിലെ സൌദി കോൺസുലേറ്റിലേക്ക് ഖഷോഗി കയറി പോകുന്നതായാണ് അവസാനമായി കണ്ടത്

സി കേഡറ്റുകളുടെ സാഹസികത നിറഞ്ഞ ദീർഘദൂര നാവിക പര്യടനം തുടങ്ങി ആലപ്പുഴ എറണാകുളം തൃശൂർ മേഖലകളിലെ ഏക നേവൽ എൻ

സി പരിശീലന യൂണിറ്റാണ് സാഹസിക നാവിക പരിശീലന യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്